കൌൺസിൽ യോഗം ഇന്ന്

ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ചേരുന്നത് വ്യാഴാഴ്ച ചേരാനിരുന്ന യോഗം പാർലമെന്റ് സമ്മേ ളനം നീണ്ടുപോയതിനെതുടർന്ന് മാറ്റിവെയ്ക്കുകയായിരുന്നു വൈദ്യുതി വാഹനങ്ങൾക്ക് നികുതിയിളവ് നൽകുന്ന കാര്യം പരിശോധിക്കാൻ ഉദ്യോ ഗസ്ഥസമിതിയെ കഴിഞ്ഞ യോഗം നിയോഗിച്ചിരുന്നു സമിതി റിപ്പോർട്ട് ഇന്ന് യോഗത്തിന്റെ പരിഗണനയ്ക്കുവരും

കൌൺസിൽ പരിഗണിക്കും സംസ്ഥാനഗവൺമെന്റ് ലോട്ടറികൾക്കും സ്ഥകാരൃ ലോട്ടറികൾക്കും ഒരേ നികുതി ഏർപ്പെടുത്തുന്നതിന് കേരളമുൾപ്പെടെ സംസ്ഥാനങ്ങൾ എതിർക്കുന്നുണ്ട്

ഭരണ കക്ഷി നേതാക്കളെ പോലും മർദ്ദിക്കുന്ന വിധത്തിലേക്ക് കേരള പൊലീസ് മാറി യെന്നും പിണറായി വിജയന്റെ പൊലിസിന് എന്തൊക്കെയോ സംഭവിച്ചു വെന്നാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു

ഐ സംസ്ഥാന സെക്രട്ടറി കാനംരാജേന്ദ്രനെടുത്ത നിലപാട് ശരിയായില്ലെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു എറണാകുളത്ത് സി

എൽ

എയുടെ കൈയ്ക്ക് ഒടിവോ മാരകമായ പരിക്കുകളോ ഏറ്റിട്ടി ല്ലെന്നും എല്ലുകൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും അദ്ദേഹം ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയാണ് റിപ്പോർട്ട് നൽകിയത് പരിക്കിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നും പൊലീസ് ആവശ്യ പ്പെട്ടു കലക്ടർ എസ് സുഹാസ് റിപ്പോർട്ട് മറ്റന്നാൾ മുഖ്യമന്ത്രിയ്ക്ക് സമർപ്പിക്കും എറണാകുളം ലാത്തിച്ചാർജ്ജിൽ തന്റെ കൈയ്ക്ക് പൊട്ടൽ ഏറ്റിട്ടി ല്ലെന്ന പൊലീസ് റിപ്പോർട്ട് വ്യാജമെന്ന് എൽദോ എബ്രഹാം എം

എ പറഞ്ഞു റിപ്പോർട്ട് മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം വൃക്ത മാക്കി കൈയ്ക്ക് പൊട്ടലുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഇടതു കൈയ്ക്ക് പൊട്ടലുണ്ടെ ന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും അദ്ദേഹം കൊച്ചിയിൽ അറിയി ച്ചു കൈ ഒടിഞ്ഞുവെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും ഒരുപാട് വ്യാജ റിപ്പോർട്ടുകൾ കൊടുത്ത് ശീലമുള്ളവരാണ് പൊലീസെന്നും എൽദേ എബ്രഹാം പറഞ്ഞു മർദ്ദനമേറ്റശേഷം അതിന്റെ ആഴമളക്കുന്നത് നല്ല ശീലമല്ല നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും മർദ്ദനമേൽക്കുന്ന തിൽ ഒരുമടിയുമുണ്ടായിട്ടില്ലെന്നും എൽദോ അറിയിച്ചു പൊലീസ് അതിക്രമത്തിൽ എൽദോ എബ്രഹാം എം

എയുടെ കൈയ്ക്ക് പൊട്ടലുണ്ടെന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തിയ പരി ശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് സി

എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു പറഞ്ഞു ഈ റിപ്പോർട്ട് ജില്ലാ കല്പക്ടർക്ക് കൈമാ റിയിട്ടുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളജ് സംഘർഷത്തിൽ

നേരത്തെ ആറുപേരെ സസ്പെന്റ് ചെയ്തിരുന്നു

അതിനിടെ അഖിൽ വധശ്രമക്കേസിലെ മുഖ്യപ്രതി ശിവരഞ്ജിത്തിനെ ഉത്തരകടലാസ് ചോർച്ചകേസിൽ പൊലീസ് കോളേജിലെത്തിച്ച് തെളി വെടുത്തു സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാ നിക്കും

നടി ഷീലക്കാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷത്തെ ജെ സി ഡാനിയേൽ പുരസ്കാരം കർണ്ണാടകയിൽ മുഖ്യന്ത്രി ബി

ഇന്നലെ വൈകീട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് വിശ്വാസവോട്ട് നേടിയശേഷം മന്ത്രിസഭ വിക സിപ്പിക്കുമെന്ന് അദ്ദേഹം ബംഗലൂരുവിൽ അറിയിച്ചിരുന്നു അതിനിടെ ബിജെപി ഗവൺമെന്റിനെ പുറത്തുനിന്ന് പിന്തുണ നൽക ണമെന്ന് ജനതാദൾ എസിലെ ഒരുവിഭാഗം എം

എ മാർ ആവശ്യ പ്പെട്ടതായി മുൻമന്ത്രി ജി ടി ദേവഗൌഡ മാധ്യമങ്ങളെ അറിയിച്ചു

കുമാരസ്വാമി ബംഗലൂരുവിൽ വിളിച്ചു ചേർത്ത ജെ

എസ് നിയസഭാകക്ഷി യോഗത്തിലാണ് എം

എ മാർ ഈ ആവശ്യം ഉന്നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിരിക്കണ മെന്ന് ഒരുവിഭാഗം എം എൽ എ മാർ ആവശ്യപ്പെട്ടെന്നും ഇക്കാര്യത്തിൽ അന്തിമതീരുമാനമെടുക്കാൻ കുമാരസ്വാമി അധികാരപ്പെടുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡറും പാകിസ്ഥാൻകാരനുമായ മുന്ന ലാഹോരി ഉൾപ്പെടെ രണ്ടു ഭീകരരെ സുര ക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു കശ്മീരിൽ അനേകം തദ്ദേശവാസി കളെ കൊലപ്പെടുത്തിയതിൽ മുന്നലാഹോരിയ്ക്ക് പങ്കുണ്ടായിരുന്നുവെന്ന് പൊലീസ് അറിയിച്ചു

തിരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാ സേനയ്ക്കുനേരെ ഒരുവീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരർ വെടിവെച്ചപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായത്

ഇന്ത്യൻ സൈനിക പോസ്റ്റുകളെ ലക്ഷ്യമാക്കി പാകി സ്താൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിവയ്ക്കുകയായിരുന്നുവെന്ന് ഔദ്യോഗികകേന്ദ്രങ്ങൾ ശ്രീനഗറിൽ അറിയിച്ചു

കനത്തമഴയിൽ മുംബൈ റെയിൽവേസ്റ്റേഷനുസമീപം കുടുങ്ങി പ്പോയ യാത്രക്കാരെ ഹെലികോപ്റ്ററിൽ രക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് വ്യോമസേനയുടെ സഹായംതേടി

നിരവധി വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്നിന് രണ്ടാംതവണയും പ്രധാനമ ന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടത്തുന്ന രണ്ടാമത്തെ മൻ കി ബാത് പരിപാടിയാണിത് ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പരിപാടിയുടെ മല യാളം പരിഭാഷയും ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും കോയമ്പത്തൂരിലെ വെള്ളാലൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചു കാറിലുണ്ടായിരുന്നവരാണ് മരിച്ചത് കാർ ഡ്രൈവർ പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി മുഹമ്മദ് ബഷീറിനെ തിരിച്ചറിഞ്ഞു മറ്റുള്ള വരെ തിരിച്ചറിഞ്ഞിട്ടില്ല കെട്ടിടനിർമ്മാണ കോൺട്രാക്ടറായ ബഷീർപാലക്കാടുനിന്ന് സേല ത്തേക്ക് ഇതരസംസ്ഥാന തൊഴിലാളികളെയുംകൊണ്ട് പോകുമ്പോൾ ഇന്ന് കാലത്ത് അഞ്ചുമണിയോടെയായിരുന്നു അപകടം മരിച്ചവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു രണ്ടുപേർ സംഭവസ്ഥലത്തും ബഷീറടക്കം മൂന്നു പേർ ആശുപത്രിയിലുമാണ് മരിച്ചത് ലോറി ഡ്രൈവറെ പൊലീസ് കസ്റ്റ ഡിയിലെടുത്തു മുസ്ലീംലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും എഴുത്തുകാരനും പത്ര പ്രവർത്തകനുമായ എം

തങ്ങൾ അന്തരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയസംബന്ധമായ രോഗത്തെതുടർന്ന് രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ചന്ദ്രിക പത്രാധിപരായും വർത്തമാനം പത്രത്തിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കൺട്രോൾ ബോർഡിന്റെ ഫുൾടൈം മെമ്പറായി രുന്നു ലീഗ് സൈദ്ധാന്തികനും ചരിത്രകാരനുമായ എം

തങ്ങൾ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്

വയനാട് പൂക്കോട് വെറ്ററിനറി സർവ്വകലാശാലയിൽ പഠനത്തിനായി എത്തിച്ച പക്ഷികളെ സംരക്ഷിക്കുമെന്ന് മന്ത്രി കെ

ഇതിനായി ഉദ്യോ ഗസ്ഥർക്ക് നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയി ച്ചു സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ വയനാട്ടിലെ നൂൽപ്പുഴ പഞ്ചായത്തിലെ ആദിവാസികോളനി സന്ദർശിച്ചു ഗവൺമെന്റ് നൽകുന്ന ഭക്ഷ്യ സാധനങ്ങൾ ആദിവാസികൾക്ക് യഥാസമയം ലഭിക്കുന്നൂണ്ടോ എന്ന് അറിയാനായിരുന്നു പരിശോധന ആദിവാസികളുമായി ഇതു സംബ ന്ധിച്ച് കമ്മീ ഷൻ ചെയർമാൻ കെ

മോഹൻ കുമാറും അംഗങ്ങളും വിശദമായ ചർച്ച നടത്തി ആദിവാസികൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്ന സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഗവൺമെന്റിന് ശുപാർശകളോടെ വൈകാതെ ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകു മെന്ന് ചെയർമാൻ അറിയിച്ചു നൂൽപ്പുഴ പഞ്ചായത്തിലെ ചുക്കാലുകുനി കാട്ടുനായ്ക ആദി വാസികോളനിയാണ് സംഘം സന്ദർശിച്ചത് സെക്രട്ടറിയേറ്റിലേയും മറ്റ് വകുപ്പുകളിലെയും ഫ്യൽതീർപ്പാക്കൽ പരിപാടിയുടെ ഭാഗമായി തീർപ്പാക്കേണ്ട ഫയലുകളിലെ പരാമർശങ്ങളും വിശദാംശങ്ങളും സംബന്ധിച്ച് പട്ടിക ഓഗസ്റ്റ് പത്തിനകം തയ്യാറാക്കും

ശീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിഗെ രാവിലെ കാസർകോട് ബേള സുബ്രഹ്മണ്യക്ഷേത്രത്തിൽ ദർശനം നടത്തി ശ്രീലങ്കൻ സുരക്ഷാ സംഘത്തിനുപുറമെ ക്ഷേത്രത്തിനും പരിസരത്തും മറ്റ് സുരക്ഷാസന്നാ ഹങ്ങളും ഒരുക്കിയിരുന്നു